കേരളത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം കർശനമാക്കി തലസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ഡൌൺ നിലവിൽവന്നു

ഗൂജറാത്ത് മഹാരാഷ്ട്ര ബീഹാർ അസം എന്നിവിടങ്ങൾ പ്രളയഭീതിയിൽ

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് ഗോപി

എസ് ആർ ടി

ബാങ്ക് എ ടി

പെട്രോൾ പമ്പുകൾ പാചക വാതക വിതരണം വൈദ്യുതി ജലം തുടങ്ങിയവയ്ക്കും നിയന്ത്രണം ബാധകമല്ല

നിയമം ലംഘിക്കുന്നവർക്കെതിരെ കേസെടുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു

രോഗികളുടെ എണ്ണം അതേസമയം വർധിക്കുന്നുണ്ടെങ്കിലും നഗരത്തിൽ സമൂവ്യാപനമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്

എം ആർ അറിയിച്ചു

കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങ് പാലിച്ചായിരിക്കും ഇവ തുറക്കുന്നതെന്ന് ടൂറിസം മിന്തിട് പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഡൽഹിയിൽ അറിയിച്ചു

ഗൾഫ് നാടുകളിൽ നിന്നുള്ള വിമാനങ്ങൾക്കുപുറമെ ചിക്കാഗോയിൽ നിന്നുള്ള വിമാനവും കൊച്ചിയിൽ എത്തിച്ചേരും

അതിനിടെ വിമാനത്താവളത്തിലെ ടാക്സി കൌണ്ടർ ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ മൂന്നാം ഘട്ട ആരോഗ്യസുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുമെന്ന് സിയാൽ അധികൃതർ അറിയിച്ചു

റോഡ് മാർഗ്ഗമുള്ള യാത്രയ്ക്കാണിത് കോവിഡ് പരിശോധനയ്ക്കുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗ്ഗരേഖ ബാധകമായിരിക്കും സുപ്രീം കോടതി നിയോഗിച്ച ഉപസമിതി യോഗത്തിനുശേഷം ജമ്മുകാശ്മീർ ചീഫ് സെക്രട്ടറി ബി

സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം അറിയിച്ചത്

വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ഡോ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു ഐക്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ശ്രീ

ഇന്ത്യയുടെ വികസനത്തിന് പ്രധാന പങ്കുവഹിച്ച മുഖർജി ദേശീയ ഐകൃത്തിനായി ധീരമായി പ്രയത്നിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്റർ സന്ദേശത്തിൽ കുറിച്ചു ആഭ്യന്തരമന്ത്രി അമിത് ഷാ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എന്നിവരും ശ്യാമപ്രസാദ് മുഖർജിയ്ക്ക് ആദരം അർപ്പിച്ചു

ഗുജറാത്ത് മഹാരാഷ്ട്ര ബ്ലിഹാർ അസം സംസ്ഥാനങ്ങളിലാണ് മഴ ശക്തമായത്

ഗിർസോംനാഥ് ജുനാഗഥ് അമ്രേലി എന്നീ സ്ഥലങ്ങളിലും ശക്തമായ മഴയാണ് ഇന്നലെ പെയ്തത് ഇന്നലെ രാവിലെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു ഷെത്രുഞ്ചി നദിയിൽ ജലനിരപ്പുയരുന്നതിനാൽ താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിലായി

സിന്ധു ദുർഗ രത്നഗിരി പനവേൽ സത്താറ മേഖലകളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്

ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലെർട്ട് നൽകിയത്

ചെന്നൈ ഒഴികെ പ്രദേശങ്ങളിലാണ് ലോക്ഡൌൺ ഇളവ് നൽകിയെങ്കിലും ചെന്നൈയിൽ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു

മന്ത്രി ഉദയകുമാർ ഹെൽത്ത് സെക്രട്ടറി ഡോ രാധാകൃഷ്ണൻ എന്നിവർ സ്ഥിതിഗതികൾ വിലയിരുത്തി

ഈ സാഹചര്യത്തിൽ പ്രത്യേകം കോവിഡ് സെന്റർ ഇ കൌൺസിലിംഗ് സെന്റർ എന്നിവ ഉടൻ ആരംഭിക്കും